ഇന്നുച്ചവരെ പതിനഞ്ച് മരണമുണ്ടായ തായി റിപ്പോർട്ട്

കേരളത്തിലെ ത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി കൊച്ചിയിൽ ചർച്ച നടത്തിയതിന്ശേഷമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്

മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാന മന്ത്രിയുടെ ദേശീയ ദുരിതാശാസനിധിയിൽനിന്ന് രണ്ടുലക്ഷം രൂപ വീതം അടിയന്തിരധനസഹായം നൽകുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു

സാമൂഹ്യ സുര ക്ഷാപദ്ധതികളിൽ അംഗങ്ങളായ ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കണക്കാക്കി യഥാസമയം നൽകുന്നതിന് ഇൻഷൂറൻസ് കമ്പനികൾ സ്പെഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു പ്രളയത്തിൽ തകർന്നുപോയ ദേശീയപാത അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ദേശീയപാതാ അതോറിട്ടിക്കൂം അദ്ദേഹം നിർദ്ദേശം നൽകി വൈദ്യുത ലൈനുകൾ പുനസ്ഥാപിക്കുന്നതിന് സംസ്ഥാനഗവൺമെന്റിനെ സഹായിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ എൻ

സിയോടും പവർഗ്രിഡ് കോർപ്പറേഷനോടും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പ്രളയ ത്തിൽ കുടിലുകൾ നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭവനനിർമ്മാണ പദ്ധതിയിൽ മുൻഗണനാക്രമം പാലിക്കാതെ തന്നെ വീടുകൾവച്ചുനൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാ നത്തെ കാലവർഷക്കെടുതിയിലെ മരണങ്ങളിൽ പ്രധാനമന്ത്രി ദുഖമറി യിച്ചു ഭക്ഷ്യധാന്യങ്ങളും മരുന്നുമുൾപ്പെടെ ദുരിതാശ്ചാസ സാധനങ്ങൾ സംസ്ഥാനത്തിന് നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പുനൽകി സംസ്ഥാ നത്തെ പ്രളയകെടുതി കേന്ദ്രഗവൺമെന്റ് സസൂക്ഷ്മം നിരീക്ഷിച്ചുവരി കയാണെന്നും സ്ഥിതി നേരിടാൻ സംസ്ഥാനഗവൺമെന്റിന് എല്ലാ സഹാ യവും നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എറണാകുളം തൃശ്ശൂർ മേഖലകളിലെ പ്രളയ ദുരിത ബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമ നിരീക്ഷണം നടത്തി രാവിലെ തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണത്തിനായി ഹെലിക്കോപ്റ്ററിൽ പുറപ്പെട്ടെങ്കിലും പ്രതി കൂല കാലാവസ്ഥമൂലം തിരിച്ചിറങ്ങേണ്ടിവന്നു പിന്നീട് ഏതാനും സമയ ത്തിനുശേഷം കാലാവസ്ഥ അനുകൂലമായതോടെ വ്യോമനിരീക്ഷണം പുനരാരംഭിക്കുകയായിരുന്നു ഗവർണർ പി സദാശിവം കേന്ദ്ര മന്ത്രി അൽഫോൻസ് കണ്ണന്താനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ പ്രധാനമന്ത്രി ക്കൊപ്പം ഉണ്ടായിരുന്നു

കേരളത്തിൽ ഇൻഷൂറൻസ് ക്ലെയിമുകൾ എത്രയുംവേഗം തീർപ്പാക്ക ണമെന്ന് എല്ലാ ഇൻഷൂറൻസ് കമ്പനികൾക്കും ഇൻഷൂറൻസ് റഗുലേറ്ററി ഡവലപ്പ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകി ഇതിനായി സ്പെഷ്യൽ കൃാമ്പുകൾ സംഘടിപ്പിക്കണമെന്നും തുക ഉടൻ കൈമാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രളയബാധിത മേഖലയിലെ മൊബൈൽ കണക്ഷനുകൾ യുദ്ധകാ ലാടിസ്ഥാനത്തിൽ പുനസ്ഥാപിക്കാൻ വിവിധ മൊബൈൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പ്രളയ പ്രദേശങ്ങളിൽ കടന്നുചെന്ന് മൊബൈൽ ടവ റുകൾ നന്നാക്കാനും ജനറേറ്ററുകളിൽ ഇന്ധനം നിറയ്ക്കാനും മൊബൈൽ കമ്പനി ടെക്നീഷ്യന്മാർക്ക് അനുമതി നൽകും നെടുമ്പാശേരി വിമാനത്താവളം അടച്ചിട്ടതുമൂലം യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ ആഭ്യ ന്തര സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ നിർദ്ദേശം നൽകി മധ്യകേരളത്തിൽ വ്രെള്ളപ്പൊക്കക്കെടുതി രൂക്ഷമായി തുടരുന്നു പത്ത നംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ജലനിരപ്പ് വീണ്ടും ഉയരുന്ന തായാണ് റിപ്പോർട്ട് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി ആറന്മുള ചമ്പക്കുളം ഭാഗത്ത് നിരവധിപേർ കുടുങ്ങിക്കിടക്കുകയാണ് കൂടുതൽ വള്ളങ്ങളും ബോട്ടുകളും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്

ചെങ്ങന്നൂർ പാണ്ടനാട്ട് ഇല്ലിക്കൽ പാലത്തിനുസമീപം നാലുമൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇതുകൂടാതെ പാണ്ടനാട്ട് രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്

തിരുവല്ല തുകലശ്ശേ രിയിലും മൃതദേഹം കണ്ടെത്തി

ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെപ്പോലെ താത്ക്കാലിക ആശുപത്രികൾ തുടങ്ങുമെന്ന് മന്ത്രി കെ കെ ശൈലജ അറി യിച്ചു

ഫിഷറീസ് വകുപ്പിന്റെ നാനൂറോളം ഔട്ട്ബോർഡ് മോട്ടോർ വള്ള ങ്ങളും ബോട്ടുകളും ദുരിതാശ്വാസ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി ജെ

സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് മത്സ്യതൊഴിലാളികളുടെയും മറ്റുള്ള്വരുടെയും സഹായത്തോടെ യാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ബോട്ടുകൾ കണ്ടെത്തിയത്

അൻപത്തിരണ്ടര ലക്ഷം രൂപ വിലവരുന്ന കുട്ടികളുടെ ഈ പോഷകാ ഹാരം വ്യോമസേനയുടെ വിമാനത്തിലാണ് രാവിലെ എത്തിച്ചത് കേരളത്തിലെ മഴക്കെടുതി ദേശീയദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും ജീവനോപാധികളും ഭാവിയിൽ അപകടത്തിലാ ണെന്ന് അദ്ദേഹം ടിറ്ററിൽ പറഞ്ഞു സംസ്ഥാനത്തെ പ്രപളയം നേരിടാൻ നേരത്തെ തന്നെ സൈന്യത്തിന്റെ സഹായം തേടണമായിരുന്നുവെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇപ്പോഴത്തെ പ്രളയ സാഹചര്യം നേരി ടാൻ സംസ്ഥാനത്തെ സന്നാഹങ്ങൾക്കൊണ്ട് സാധ്യമല്ലാത്തതുകൊ ണ്ടാണ് സൈന്യത്തെ വിളിക്കാൻ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ദുരഭിമാനം പുലർത്തിയതായി അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു പ്രളയവുമായി ബന്ധപ്പെട്ട എല്ലാവിഷയങ്ങളിലും പ്രതി പക്ഷം ഗവൺമെന്റിനൊപ്പം ചേർന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇക്കാര്യ ത്തിൽ രാഷ്ട്രീയം കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ബാലൻ അറിയിച്ചു

ആർ

എഫിന്റെ അടക്കം സഹായത്തോടെയാണ് ഗതാഗത സൌകര്യം ഒരു ക്കിയതെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു നെല്ലിയാമ്പതിയിൽ കുടു ങ്ങിക്കിടക്കുന്നവർക്ക് ഇതുവഴി ഭക്ഷണമെത്തിക്കാൻ കഴിയുമെന്നാണ് കരു തുന്നത്

കാർത്തികപള്ളിയിൽനിന്ന് ഇന്നലെ കാണാതായ മത്സ്യബന്ധന ബോട്ടിലെ പത്തുപേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചു നിരണ ത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ബോട്ടിലെ മത്സ്യതൊഴിലാളിക രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗ സ്ഥ രെ യു മാണ് ളെയും എടത്വായ്ക്ക് സമീപം ഒരു തുരുത്തിൽ കണ്ടെത്തിയത് ഇടുക്കി ചെറുതോണി അണക്കെട്ടിലെ ജലനിരപ്പ് കുറയുകയാണ്

അണക്കെട്ടിൽനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട് ചാലക്കുടി മേഖലയിലെ വെള്ളപ്പൊക്കം കുറഞ്ഞതായാണ് വിവരം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് പാലായിൽ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുന്നതിനെതുടർന്ന് താഴ്ന്ന പ്രദേശങ്ങ ളിൽ വെള്ളം കയ്റി ഏറ്റുമാനൂർ നട്ടാശ്ശേരി നാഗമ്പടം തുടങ്ങിയ ഭാഗങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപംകൊണ്ടിട്ടുണ്ട്

പ്രളയം കാരണം കേരളത്തിൽ വെള്ളം മലിനമാ കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ രണ്ടര കോടി രൂപയുടെ ആർ ഒ മെഷീനുകളും നൽകുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി കെ

ആന്ധ്രമുഖ്യമന്ത്രി ചന്ദ്രബാബുനാ യിഡു പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റർ അമരീന്ദർസിംഗ് ഡൽഹി മുഖ്യ മന്ത്രി അരവിന്ദ് കെജരിവാൾ സംസ്ഥാനത്തിന് ദുരിതാശ്വാസ പ്രവർത്തന ങ്ങൾക്കായി പത്തുകോടിരൂപവീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ദുരിതബാധിതരെ സഹായിക്കാൻ യു

ഇയും ഇന്ത്യൻ സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അടിയന്തിര സഹായം നൽകാൻ യു എ ഇ

ഇ വൈസ്പ്രസി ഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ക്ക് മുഹ ട മ്മദ് ബിൻ റാഷിദ് അൽമക്ത്തും ഫേസ് ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു

എ ഇയുടെ വിജയത്തിന് കേരള ജനത എക്കാലവും ഒപ്പമുണ്ടായിരു ന്നുവെന്നും പ്രളയബാധിതരെ പിന്തുണക്കാനും സഹായിക്കാനും നമുക്ക് പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

സ്ഥലവും മറ്റുവിവരങ്ങളും ഒരു ബട്ടൺ അമർത്തുന്നതിലൂടെ രക്ഷകരുടെ ഡാറ്റാബേസിൽ രേഖപ്പെടുത്താനും പ്രസ്തുത സ്ഥലത്തേക്ക് അവർക്ക് എത്തിച്ചേരാനും ഉപയോഗപ്പെടുന്നതാണ് ആപ്പ്

വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് നാല് ട്രക്കുകൾ നിറയെ ഭക്ഷ്യവ സ്തുക്കളും സാധന സാമഗ്രികളും അയച്ചു കാസർകോട് നിന്ന് പ്രളയബാധിത മേഖലകളിലേക്ക് വസ്ത്രങ്ങളും ഭക്ഷ്യസാധനങ്ങളുമായി വാഹനങ്ങൾ പുറപ്പെട്ടു കാസർക്കോട്ടെ ജന മൈത്രി പൊലീസാണ് വയനാട്ടിലെ ദുരിതബാധ ജനങ്ങൾക്ക് വസ്ത്ര ങ്ങളും ഭക്ഷ്യസാധനങ്ങളും ശേഖരിച്ചത്

പ്രസിഡന്റ് മംനൂൺ ഹുസൈൻ ഇസ്ലാമാബാദിൽ പ്രസിഡന്റിന്റെ ഔദ്യോഗികവസതീയിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ ഇമ്രാൻഖാന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കോഴിക്കോട്ടുനിന്ന് മംഗലാപുരത്തേക്ക് ഇന്ന് നാല് പ്രത്യേക ട്രെയിൻ സർവ്വീസുകൾ നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു ആദ്യ ട്രെയിൻ രാവിലെ പത്തിന് പുറപ്പെട്ടു

കോഴി ക്കോടുമുതൽ മംഗലാപുരംവരെ എല്ലാ സ്റ്റേഷനുകളിലും ട്രെയിനിന് സ്റ്റോപ്പുണ്ടാകും തിരുവനന്തപുരത്തിനും എറണാകുളത്തിനുമിടയിൽ മൂന്ന് പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ അഞ്ച് ട്രെയിനുകൾ ഓടിക്കും ജന ശതാബ്ദി ഏറനാട് എക്സ്പ്രസുകളും തിരുവനന്തപുരത്തിനും എറണാകുളത്തിനുമിടയിൽ സർവ്വീസ് നടത്തും പാലക്കാട് ഷോർണൂർ റൂട്ടിൽ ഉച്ചയോടെ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇന്ധന ക്ഷാമമില്ലെന്ന് ജില്ലാ കലക്ടർ യു